മഹാവിജയത്തിന്റെ സ്മരണ ഉയർത്തി ഇന്ന് കാർഗിൽ വിജയ് ദിവസ്

ആത്മനിർഭർഭാരത് പാക്കേജിൽ ഉൾപ്പെടുത്തി പാർപ്പിട നഗരമന്ത്രാലയമാണ്

സുതാരൃത കൃതൃത എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി വെബ് പോർട്ടൽ മൊബൈൽ ആപ്പ് എന്നിവയിലൂടെ പ്രവർത്തനം സുഗമമാക്കിയതിൽ പ്രധാനമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു പദ്ധതിയിലൂടെ തെരുവ് കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ഗ്രാമവികസന പദ്ധതികളുടെ ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പരിപാടി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രആരോഗൃമന്ത്രാലയം നിർദ്ദേശം നല്കിയിട്ടുണ്ട്

നോയിഡ കൊൽക്കത്ത മുംബൈ എന്നിവിടങ്ങളിലെ ലാബുകൾ വൈകുന്നേരം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് പ്പെയ്ത ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണ് ഇന്നീലുത്തേത്

ചികിത്സാ പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള മാർഗ നിർദേശങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ വെബ് സൈറ്റിൽ ലഭ്യമാണ്

ഇനി അറിയ്ടിപ്പുണ്ട്ാകുന്നത് വരെ ഇത് തുടരും

ഇന്ന്ലെ പ്രവാസികളുമായി ഒമ്പത് വിമാനങ്ങളാണ് കൊച്ചിയ്യിൽ ഇറ്ങ്ങിയത്

ആകാശവാണി ദൂരദർശൻ വാർത്തകൾ പ്രധാനമന്ത്രിയുടെ കാര്യാലയം വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യു ട്യൂബ് ചാനലിലും പരിപാടി തത്സമയം ലഭിക്കും ഹിന്ദിയിലുള്ള പരിപാടി കഴിഞ്ഞാലുടൻ മലയാള പരിഭാഷയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും

കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ഇന്ത്യൻ ജവാന്മാർക്ക് ആദരമർപ്പിച്ചാണ് ദിനാചരണം

പാക്സൈന്യത്തിന്റെ നേതൃത്തിലുള്ള നുഴഞ്ഞു കയറ്റക്കാരെ കാർഗിൽ സെക്ടറിൽ നിന്ന് ഇന്ത്യ തുരത്തിയോടിച്ച ദിനമാണിത്

സംഭരണ പ്രക്രിയയിൽ പ്രാദേശിക കച്ചവടക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമന്നും ശ്രീ

ഇന്നലെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പാർട്ടി നിയമസഭാ സാമാജികരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു നേരത്തെ മന്ത്രിസഭായോഗം ചേർന്ന് അട്ടിയന്തിരമായി നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണ്ണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു

അമീർ നൂർ വാലി മെഹ്സൂദ് നേതൃത്വം നല്കുന്ന തഹ്രിക് താലിബാനാണ് നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ സംഘടന പാകിസ്ഥാനിൽ നടന്ന നിരവധി ഭീകര ആക്രമണങ്ങൾക്കു പിന്നിൽ ടിടിപിയാണെന്ന് റിപ്പോർട്ടിലുണ്ട്